എട്ട്കോടി രൂപയുടെ കാർഷിക നഷ്ടമുണ്ടാ യതായി വിലയിരുത്തൽ വെള്ളിയാഴ്ച വരെ ശക്ത മായ കാറ്റിനും മഴക്കും സാധ്യത് തെരുവ് നായ്ക്കളുടെ കടിയേറ്റവർക്ക് നഷ്ട പരി ഹാരം നൽകാതിരുന്നാൽ കർശന നടപടിയുണ്ടാ കുമെന്ന് സുപ്രിംകോടതി ്ക്കയം ചെറുകിട ജല വൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചു ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസാചാരണ ത്തിന് തുടക്കമായി ഇന്തൃ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ

ഒഴുക്കിലും വെള്ളക്കെട്ടിലും വീണ് അഞ്ചി ലേറെ പേരെ കാണാതായി മലയോരമേഖലയിൽ പലയിടത്തും ഉരുൾപൊട്ടി മരങ്ങൾ വീണും വെള്ളം കയ റിയും വിവിധയിടങ്ങളിൽ റോഡ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു പല ജില്ലകളിലും നദികൾ കരകവിഞ്ഞൊഴു കുകയാണ് സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ എട്ടുകോടി രൂപ യുടെ നാശനഷ്ടം ഉണ്ടായതായി ഗവൺമെന്റ് വിലയി രുത്തി വെള്ളിയാഴ്ചവരെ ശക്തമായ മഴയും കാറ്റും സംസ്ഥാനത്തുണ്ടാകുമെന്നാണ് കാലാവസ്ഥാമുന്നറിയി പ്പ് ഒഡിഷ തീരത്ത് ബംഗാളശ് ഉൾക്കടലിലുണ്ടായ ന്യൂന മർദത്തെതുടർന്നാണ് കേരളത്തിൽ ശക്തമായ മഴയുണ്ടാ കുന്നത്

ശക്തമായ കടൽക്ഷോ ഭത്തിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കനത്തമഴയുടെ സാഹ ചരൃത്തിൽ ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസസ്ഥാപനങ്ങൾക്കും അവധി നൽകി എറണാകുളം ജില്ലയിൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ പ്ലസ്ടുവരെ ക്ലാസുകൾക്ക് അവധിയായിരി ക്കും തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ചാവക്കാട് താലൂക്കുകളിൽ പ്രൊഫഷണൽ കോളജുകൾ ഒവികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി നില മ്പൂർ താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവ ധിയായിരിക്കും അമ്പലപ്പുഴചേർത്തല കുട്ടനാട് താലൂ ക്കുകളിലെ എല്ലാവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവദി പ്രഖ്യാപിച്ചു

പമ്പ്നദിയിൽ കുളിക്കാനിറ ങ്ങിയ ശബരിമല തീർഥാട്ടകനെ ഒഴുക്കിൽപെട്ട് കാണാ തിയി ആലപ്പുഴ സ്വദേശി ഗോപകുമാറിനെയാണ് കാണാ തായത് ആലപ്പുഴയിൽ പതിനയ്യായിരത്തോളം വീടുകളിൽ വെള്ളംകയറി കുട്ടനാട്ടിൽ ആര് പാടശേഖരങ്ങളിൽ മട വീണ് കൃഷി നശിച്ചു

അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടകയാണ് ശക്തമായ മഴയിൽ മലപ്പുറം ജില്ലയുടെ തീര മലയോര മേഖലകൾ കടുത്ത ഭീതിയിൽ തുടരുന്നു ഇന്നലെ രാത്രി യിലും മഴ ശക്തമായിരുന്നു

ഒരുകുട്ടി കുളത്തിൽ മുങ്ങി മരിച്ചു രണ്ടുപേരെ ഒഴുക്കിൽപെട്ട് കാണാതായി

പൊന്നാനി തിരൂർ താലൂക്കുകളിലെ തീര മേഖലകൾ ശക്തമായ കടലാക്രമണ ഭീഷണിയിലാണ് കണ്ണൂരിൽ കനത്തമഴ തുടരുന്നു പെരിങ്ങത്തൂർ കരിയാട് വെള്ളക്കെട്ടിൽ വീണ് വീട്ടമ്മ മരിച്ചു മുക്കാളിക്കരയിലെ നാണിയാണ് മരിച്ചത് മാലൂരിനടുത്ത് ഇരട്ടയങ്ങലിൽ സ്വകാര്യ ബസിന് മുകളിൽ മരം വീണ് ഡ്രൈവർക്ക് പരി ക്കേറ്റു കണ്ണൂർ നഗരത്തിൽ മരം കടപുഴകി വീണ് ഗതാ ഗതം തടസ്സപ്പെട്ടു ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗ തവും തടസപ്പെട്ടു കണ്ണൂർ സൌത്ത് സ്റ്റേഷനും എടക്കാ ടിനുമിടയിലാണ് ഇന്നലെ മരം മുറിഞ്ഞ് വീണത്

കൊട്ടിയൂരിനടുത്ത് പാൽച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കൊല്ലം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ കുരീപ്പുഴയിൽ തെങ്ങ് വീടിനു മുകളിലേക്ക് വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു ജില്ലയിൽ ഓച്ചിറ കരുനാഗപ്പള്ളി പേരൂർ ക്ലാപ്പന എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ കൃാമ്പുകൾ പ്രവർത്തിക്കുന്നു

് പാലക്കാട് മംഗലംഡാം കടപ്പാറ മേഖലയിൽ ഉരുൾപൊ ട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി

സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പി ച്ചു കാലവർഷക്കെടുതി നേരിടാൻ ജില്ലയിൽ മൂന്ന് ദുരി താശ്വാസ ക്യാംപുകൾ ആരംഭിച്ചു

തെരുവ്നായകളുടെ കടിയേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് നടപ്പാക്കിയോ എന്നിറിയിക്കാൻ സുപ്രികോടതി സംസ്ഥാന ഗ്വൺമെന്റിനോട് ആവശ്യ പ്പെട്ടു നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടിവരുമെന്ന് ഡിവി ഷൻബെഞ്ച് മുന്നറിയിപ്പി നൽകി ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി ശുപാർശ ചെയ്ത നഷ്ടപരിഹാരം തെരുവ്നാ യകളുടെ കടിയേറ്റവർക്ക് കൊടുത്തിരിക്കണമെന്നും കോടതി നിർദേശിച്ചിട്ടുണ്ട് നഷ്ടപരിഹാരം നൽകണ നെന്ന സുപ്രിംകോടതിവിധി പൂർണമായി നടപ്പാക്കിയി ല്ലെന്നും കാണിച്ചു നൽകിയ കോടതിയലക്ഷ്യ ഹർജിയി ലാണ് സിവിൽബെഞ്ച് നിർദേശം ് സംസ്ഥാനത്ത് വൈദ്യുതി സ്വയം പര്യാപ്തതക്ക് പരമാ വധി ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാനാണ് ഗവൺമെന്റ് തീരുമാനമെന്ന് മന്ത്രി എം

കോഴിക്കോട് കക്കയം ചെറുകിട ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം

ഡി

ഐ നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതിന്റെ പേരിൽ ഇന്നു നടത്താൻ ആഹ്വാനം ചെയ്ത ഹർത്താൽ പിൻവലിച്ചതായി സംസ്ഥാന ജനറൽ സെക്രട്ടരി പി അബ്ദുൽഹമീദ് കോഴിക്കോട്ടറിയിച്ചു നേതാക്കളെ ചോദ്യം ചെയ്തശേഷം വൈകിട്ട് പൊലിസ് വിട്ടയിച്ചിരു ന്നു കാലിക്കറ്റ് സർവകലാശാല ഇന്നു നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റമില്ലാതെ നടത്തുമെന്ന് അധികൃതർ അറി യിച്ചു ഇന്ന് കർക്കിടകമാസം ഒന്ന് ഭക്തിസാന്ദ്രമായ രാമായണ മാസാചരണത്തിന് തുടക്കമായി ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങലിലും രാമായണ പാരായണം ആരംഭിച്ചു

കർക്കിടക മാസത്തിലെ വിശിഷ്ടമായ നാലമ്പല ദർശന ത്തിന് മലപ്പുറം ജില്ലയിലെ രാമപുരത്ത് ഇന്ന് തുടക്കമാ വും ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നി വരുടെ ക്ഷേത്രങ്ങൾ ഒന്നിച്ചു സ്ഥിതി ചെയ്യുന്ന സ്ഥല മാണ് രാമപുരം തൃശൂർ കോട്ടയം ജില്ലകളിലും നാല മ്പല ദർശനത്തിന് ഇന്ന് തുടക്കമാവും കർക്കിടകമാസ പൂജകർമങ്ങൾക്കായി ശബരിമലയിൽ നട തുറന്നു

ഇതോടെ ഇന്നത്തെ മത്സരം നിർണായകമാണ് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചിനാണ് കളി

കൊല്ലം ജില്ലാ കുടുംബശ്രീ മിഷനും കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലും സംയുക്തമായി കരുനാഗപ്പള്ളി ടൌൺ ക്സബിൽ സംഘടിപ്പിച്ച റീജിയണൽ വിമൻ കോൺക്സേവ് പെണ്ണകത്തിന്റെ സമാപനസമ്മേളനംഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ് കോഴിക്കോട് പെരുവണ്ണാമൂഴി ഡാമിൽ സ്ഥാപിക്കുന്ന മിനി ഹൈഡ്രോ വൈദ്യുത പദ്ധതിയുടെ നിർമാണം സംബന്ധിച്ച് മന്ത്രിമാരായ എം എം മണിയുടെയും ടി പി രാമകൃഷ്ണന്റെയും സാന്നിധൃത്തിൽ അവലോകന യോഗം ചേർന്നു രണ്ട് വർഷം കൊണ്ട് പദ്ധതി പൂർത്തി യാക്കാൻ യോഗത്തിൽ മന്ത്രിമാർ നിർദേശിച്ചു

വികസന സൌന്ദരൃവത്കരണ പ്രവൃത്തികൾ പൂർത്തി യായ കോഴിക്കോട് സൌത്ത് ബ്ലീച്ച് മറ്റന്നാൾ വൈകിട്ട് അദ്ദേഹം നാടിന് സമർപ്പിക്കും നമ്പികുളം ഇക്കോടൂറിസം നിർമാണ പ്രവൃത്തിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും കേരളത്തിനു വേണ്ടി അനുവദിച്ച എയിംസ് മെഡിക്കൽ കോളജ് എൻഡോസൾഫാൻ ദുരിതബാധിതമായ ജില്ലയെന്ന് നിലയിൽ കാസർകോട് സ്ഥാപിക്കണമെന്ന് പീപ്പിൾസ് ഫോറം ആവശ്യപ്പെട്ടു പിന്നാക്ക ജില്ലയെന്ന പരിഗണനയും കാസർകോടിനു ലഭിക്കണമെന്ന് ജന റൽബോഡിയോഗം ആവശ്യമുന്നയിച്ചു

എസ് ആർ

ഒലവക്കോട് റെയിൽവേ കോളനി തേക്കിൻതൊട്ടി പ്പാർവതി മകൾ അജിത എന്നിവരാണ് മരിച്ചത്

കണ്ണൂർ പുതിയതെരുവിൽ ടൂറിസ്റ്റ്ബസ് മരത്തിലിടിച്ച് മറിഞ്ഞ് ഒരാൾ മരിച്ചു

സാഹിത്യഅക്കാദമി യിൽ നുറുങ്ങ് എം എം സേതുമാധവൻ അവാർഡ് വിത രണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം